തുടരുന്നു

എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാനെയും ഡെൽഹി കൊൽക്കത്തയേയും നേരിടും

ഇതിൽ ഒരു കോടി ആറ് ലക്ഷത്തിലേറെ ഡോസ് ഇപ്പോഴും സംസ്ഥാനങ്ങളുടെ കൈവശം ബാക്കിയുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു

എന്നാൽ കോവിൻ പ്ലാറ്റ്ഫോമിലെ സെർവർ തകരാറിലായെന്ന മാധ്യമ റിപോർട്ടുകൾ അടിസ്ഥാന രഹിതമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സാങ്കേതിക തുട്ടസ്സങ്ങളൊന്നും കൂടാതെ കോവിന് പോർട്ടൽ പ്രവർത്തിക്കുന്നതിനുള്ളൂണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയുമധികം ആളുക്ൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചതെന്നും മന്ത്രാലയം വ്യക്തമ്യൂക്കി

രാജ്യത്ത് കോവിഡ് രോഗികൾ വർധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം

ഉയർന്ന രോഗ സ്ഥിരീകരണ നിരക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തുടരും

സംസ്ഥാനത്ത് ഡ്രോക്ട്ടർമാരടക്കം കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ അടിയന്തരമായി നിയമിക്കണമെന്നും കൂടുതൽ ആൻറിജൻ ടെസ്റ്റിംഗ് കിറ്റുകൾ് അടിയന്തരമായി ലഭ്യമാക്കണമെന്നും സംഘടന സർക്കാരിന്ടുട്ട് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്

കോവിഡിന് എതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ റഷ്യ എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്തതായി ഇന്ത്യയുടെ റഷ്യന്റ് പ്രതിനിധി അറിയിച്ചു

ബോധവത്കരണ ക്യാമ്പയിൻ നടത്തുന്നതിലും യുഎൻ സംഘം സജീവമാണ്

ജനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭ്യർത്ഥിച്ചു

വിപുലമായ ക്രമീകരണങ്ങളാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്

തപാൽ വോട്ട് വർദ്ധിച്ചതിനാൽ ഫലം വൈകാനിടയുണ്ട്

വോട്ടെണ്ണൽ സമയത്ത് കേന്ദ്രത്തിന് പുറത്ത് പൊതുജനങ്ങൾ കൂട്ടംകൂടാൻ അനുവദിക്കില്ല വിജയാഹ്ലാദ പ്രകടനങ്ങൾ വിലക്കിയിട്ടുണ്ട്

നിരവധി വാർത്താ ചാനലുകളും വിവിധ ഏജൻസികളും എക്സിറ്റ്പോൾ നടത്തിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്നായതിനാൽ ഏഴര മണിവരെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് തെരഞ്ഞെടുപ്പ് കമീഷൻ തടഞ്ഞിട്ടുണ്ട്

കോവിഡ് കോടി പ്രോട്ടോക്കോൾ കർശനമായി പാല്പിച്ചാണ് വോട്ടെടുപ്പ്

സാമ്പത്തിക വർഷത്തിന്റെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ്ആദ്യ പാദത്തിലാണ് ഈ നിരക്ക് ബാധകം

ഡോക്ടർമാരുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മൃത്ദ്മേ മരുന്നുകൾ നൽകാവൂ എന്നാണ് നിർദ്ദേശം

വൈറ്റ് ഹൌസിലെ മെഡിക്കൽ ഉപദേഷ്ടാവും പാൻഡെമിക് വിദഗ്ധനുമായ ഡോ

ഇരട്ട വൃതിയാനം സംഭവിച്ച കൊറോണ വൈറസിന് എതിരെ കോവാക്സിൻ ഫലപ്രദമാണെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു

കായികതാരങ്ങളെ എല്ലാ ദിവസവും കോവിഡ് ടെസ്റ്റീർ വിധേയരാക്കുന്ന കാര്യം പരിഗ ണയിലുണ്ട്